പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാഷ്ട്രത്തിനു സമർപ്പിച്ചു സംശുദ്ധ ഊർജ്ജം എന്നത് സൌരോർജത്തിന്റെ വ്യാപക സ്വീകാര്യതയ്ക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി

രോഗബാധയിൽ വൻ വർദ്ദുന്

ഫലം പ്രഖ്യാപിച്ചു

പ്രതികൾക്കെതിരെ യു എ

എ ചുമത്തി

ഐ എ അന്വേഷണം ആരംഭിച്ചു

വീഡിയോ കോൺഫറൻസിലൂടെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിവഹിച്ചത്

സംശുദ്ധ ഊർജം എന്നത് സൌരോർജത്തിന് വ്യാപക സ്വീകാരൃത ലഭിക്കാൻ കാരണമായിട്ടുണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചടങ്ങിൽ സംബന്ധിച്ചു

അതി വ്യാപന മേഖലകളിൽ ട്രിപ്പിൾ ലോക്ഡൌണും രോഗ വ്യാപനമുള്ള മറ്റ് മേഖലകളിൽ ലോക്ഡൌണും തുടരും തിരുവനന്തപുരത്ത് ഇന്നും നൂറിലധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണിത്

എ

സ്വപ്നയ്ക്ക് സംഭവത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് കേന്ദ്ര സ്ട്ർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് എൻ ഐ എ കോടതിയാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു

എസ്

എസ്

നടത്താൻ കഴിയാത്ത പരീക്ഷകളുടെ മാർക്ക് ഇന്റേണൽ പരീക്ഷകളെ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചാണ് ഫലം പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫലത്തിൽ തൃപ്തരാകാത്തവർക്ക് പിന്നീട് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകുമെന്ന് കൌൺസിൽ ഓഫ് ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ് അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൂടുതൽ വിവരങ്ങളുമായി തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ആകാശവാണി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ഇതുവരെ ലോകത്തൊട്ടാകെ അഞ്ചര ലക്ഷത്തിലധികം പേർ മരിച്ചു